മഴക്കെ ടുതിയിൽ ഇന്നലെ ആറു മരണം പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം സമ്മേളനം സുഗമമായി നടത്താൻ എല്ലാ രാഷ്ട്രീയകക്ഷികളും സഹകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസം പ്രകടിപ്പിച്ചു ഗവൺമെന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകസമിതി പുനഃസ്ംഘടിപ്പിച്ചു

ആന്റണി

ഉമ്മൻചാണ്ടിയും കെ

വേണു ഗോപാലും പി സി ചാക്കോയും പ്രവർത്തകസമിതിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം ഇന്ന് ഡൽഹിക്ക് പോകും ഇന്ത്യയെ തോല്പിച്ച് ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് നേടി ആദ്യ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ് ചാമ്പ്യൻ ഷിപ്പ് ഇന്ന് കോഴി

സംസ്ഥാനത്ത് ശക്തമായി പെയ്യുന്ന മഴയിൽ ജനജീവിതം ദുസ്തഹമായി ഇന്നലെ പകൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായെങ്കിലും രാത്രിയോടെ മഴ കന ത്തു പലയിടത്തും തോരാത്ത മഴയാണ് ഇന്നലെ മാത്രം ആറുപേരാണ് മഴ ക്കെടുതിയിൽ മരിച്ചത്

മൂന്നുപേരെ ഒഴു ക്കിൽപ്പെട്ട് കാണാതായി

മധ്യ കേരളത്തിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷം വ്യാപക കൃഷിനാശവും ഉണ്ടാ യിട്ടുണ്ട്

എടക്കാടിനടുത്ത് ഏഴരയിൽ ശക്തമായ കടലേറ്റത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി ഏഴര അങ്കണവാടിക്കടുത്ത മുക്കടോത്തിനെയും ചേരക്കല്പി നെയും ബന്ധിപ്പിക്കുന്ന റോഡ് തിരമാലയ് ക്കൊപ്പം ഒലിച്ചുപോയി

താഴെ ചൊവ്വയ്ക്കടുത്ത് പലചര ക്കുകട തകർന്ന് കച്ചവടക്കാരൻ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു

പാർപ്പിച്ചു മഴക്കെടുതി കണക്കിലെടുത്ത് ജില്ലയിലെ എല്ലാ ക്വാറികളുടെയും പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തി വെക്കാൻ ജില്ലാകലക്ടർ ഉത്തരവിട്ടു

ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുൾപ്പെടെ കുട്ടനാട്ടിലെ റോഡു കൾ വെള്ളത്തിലായതിനാൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല

ജലനിരപ്പ് ഉയർന്ന് അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ നദിക ളിലും ജലാശയങ്ങളിലും ജനങ്ങൾ ഇറങ്ങരുതെന്ന് പത്തനംതിട്ട ജില്ലാകലക്ടർ പി

പമ്പാ നദിയിൽ ഒഴുക്ക് ശക്തിപ്പെട്ടിരിക്കുകയാണെന്നും ശബരിമല തീർത്ഥാടകർ നദിയിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കാലവർഷ കെടുതിയിൽ പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ മേഖ ലകളിൽ ദുരിതം തുടരുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി

ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് ചെങ്ങന്നൂർ താലൂക്കുകളിലെ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും കലക്ടർ അവധി പ്രഖ്യാപിച്ചു മറ്റ് സ്ഥലങ്ങ ളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവ ധിയാണ് എറണാകുളം ജില്ലയിൽ മുവ്വാറ്റുപുഴ താലൂക്കിലെയും നെടുമ്പാ ശ്ശേരി പാറക്കടവ് ചെല്ലാനം കന്നുകര പുത്തൻവേലിക്കര പഞ്ചായത്തുകളി ലെയും എല്ലാ വിദ്യാലയങ്ങൾക്കും ജില്ലാകലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധിയായിരിക്കും ് ് ് ് ് ് ് ് ശനിയാഴ്ചവരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീ ക്ഷണകേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അടുത്ത ചൊവ്വാഴ്ച വരെ കാലാവ സ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടാകില്ലെന്നും നിരീക്ഷണകേന്ദ്രം തിരുവനന്തപു രത്ത് അറിയിച്ചു

ക്കുന്നത് സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി

് പാർലമെന്റ് വർഷകാലസമ്മേളനത്തിന് ഇന്ന് തുടക്കം

സമ്മേളനം സുഗമമായി നടത്താൻ എല്ലാ രാഷ്ട്രീയകക്ഷികളും സഹ കരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസം പ്രകടിപ്പിച്ചു രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ഗവൺമെന്റ് വൻപ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സമ്മേളനം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് വിളിച്ചുചേർത്ത സർവ്വകക്ഷിയോഗത്തിൽ സംസാരിക്കുകയായി രുന്നു പ്രധാനമന്ത്രി ഫലപ്രദമായ വർഷകാലസമ്മേളനത്തിന് എല്ലാപാർട്ടി കളും അനുകൂലമായിരുന്നുവെന്ന് യോഗത്തിനുശേഷം പാർലമെന്ററി കാര്യ മന്ത്രി അനന്ത്കുമാർ വാർത്താലേഖകരെ അറിയിച്ചു

സുമിത്രാ മഹാജൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു നടപടികൾ തടസ്സപ്പെടു ന്നത് സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെന്നും വിദേശത്ത് രാജ്യത്തിന് ചീത്തപ്പേര് വരുത്തിവെക്കു ന്നുണ്ടെന്നും അവർ പറഞ്ഞു സമ്മേളനം സുഗമമാക്കുന്നതിന് സ്പീക്കർ വിളി ച്ചുചേർത്ത സർവ്വകക്ഷിയോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുക യായിരുന്നു അവർ

മറ്റു പ്രതിപക്ഷപാർട്ടികളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിവരികയാ ണെന്ന് രാജ്യസഭയിലെയും ലോക്സഭയിലെയും കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദും മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ പറ ഞ്ഞു

മരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവർ ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും

പുനഃസംഘടിപ്പിച്ചു

സോണിയാഗാന്ധി ഡോക്ടർ മൻമോഹൻസിംഗ് എ

മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടി സിദ്ധരാമയ്യ ഹരീഷ് റാവത്ത് തുടങ്ങിയവരെ പ്രവർത്തകസമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേര ളത്തിൽനിന്ന് കെ

വേണുഗോപാലിനെയും പ്രത്യേക ക്ഷണിതാവായി പി

ചാക്കോയെയും അംഗമാക്കി

സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം ഇന്ന് ഡൽഹിക്ക് പോകും നാളെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോ ദിയെയും കേന്ദ്രമന്ത്രിമാരെയും കാണും

് ് മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ തോല്പിച്ച് പരമ്പര ഇംഗ്ലണ്ട് നേടി

വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനും കോഴിക്കോട് ചക്കിട്ടപാറയിൽ ഇന്ന് തുടക്കമാവും താരങ്ങൾക്ക് തുഴ കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പരിപാടികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും

ഗവൺമെന്റ് ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് മാസ്റ്റർ പ്ലാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി ടി

കോഴിക്കോട് ഗവൺമെന്റ് ഐ ടി ഐ വർക്ക് ഷോപ്പ് ലാബ് ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേ ഹം സംസ്ഥാനത്തെ ഗവൺമെന്റ് ഐ ടി ഐകളെയും ദേശീയ അന്തർദേ ശീയ നിലവാരത്തിൽ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു

മുൻഗണനാ പട്ടികയിൽ ഉൾപെടുത്തിയതായി മന്ത്രി പി

അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉപസമിതിയുടെ സന്ദർശനം

യിൽ ഒഴിച്ച സംഭവത്തിൽ അഞ്ച് യുവമോർച്ച പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു

സാമൂഹിക പ്രവർത്തകൻ സ്വാമി അഗ്നിവേശിന് നേരെ ജാർഖ ണ്ഡിലെ പാക്കൂറിൽ നടന്ന ആക്രമണം ഞെട്ടലുളവാക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മജീദ് പറഞ്ഞു ഹിന്ദുത്വവി കാരം ഇളക്കിവിട്ടും എതിരാളികളെ കായികമായി നേരിട്ടും ഭീതി വിതച്ചും തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്ന തെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി

പാലക്കാട് ജില്ലയിൽ ഇതര സംസ്ഥാനങ്ങളിലെ ലോറികൾ ഇൻട്രാ സർവീസ് നടത്തുന്നത് തടയാൻ ഗതാഗത വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോ ഗിച്ചു കേരളത്തിനു പുറത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ കേരളത്തിൽ നിന്നും ലോഡ് കയറ്റി കേരളത്തിൽ തന്നെ ഇറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹ ചര്യത്തിലാണ് നടപടി

ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ കുട്ടികളെ ബോധവത്കരിക്കുന്ന തിനായി ഡൽഹിയിലെ ജാമിയ മിലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാർഥി അൽ അമീൻ നടത്തുന്ന സൈക്കിൾ പരൃടനം ഇന്ന് കൊല്ലം ജില്ലയിലെത്തും

സംസ്ഥാനത്ത് എട്ടു ജില്ലകളിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിലും കോളേജുകളിലുമാണ് സന്ദർശനം നടത്തുന്നത്

കേരളത്തിന്റെ വികസനത്തിന് സഹകരണ പ്രസ്ഥാനങ്ങളും പ്രവാസികളും ഒന്നിച്ച് പ്രവർത്തിക്ക ണമെന്ന് നിയമസഭാസ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു